ന്യൂഡൽഹിയിൽ നിർമിച്ച രാഷ്ട്രിയ സ്വച്ഛത കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്തു

അങ്ങനെ രാജ്യത്തെ മോശം പ്രവണതകളെല്ലാം അന്യമാകുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹിയിൽ നിർമിച്ച രാഷ്ട്രീയ് സ്ഥഛതാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് വോയിസ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ കീഴിൽ ഒരു ലക്ഷം കോടി രൂപയുടെ ധനസഹായ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു

കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രി നരേന്ദ്ര സിംഗ് തോമറും ചടങ്ങിൽ പങ്കെടുക്കും

ഇതുവഴി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ മൂല്യവർധിത മാക്കാൻ കഴിയും സംഭരിക്കാനും ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും പാഴാകുന്നത് കുറയ്ക്കാനും സംസ്കരണവും വർദ്ധിപ്പിക്കാനും കഴിയും ഒന്നിലധികം സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഒരു ലക്ഷം കോടി രൂപ അനുവദിക്കും

സാരമായി പരിക്കേറ്റവർക്ക് രണ്ട് ലക്ട്ർ രൂപയും നിസാരപരിക്കേറ്റവർക്ക് അരലക്ഷം രൂപ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

അപകട കാരണം ഇപ്പോൾ പർയാൻ സാധിക്കില്ല ബ്ലാക്ക് ബോക്സ് പരിശോധിച്ച ശേഷം മാത്രമേ അപകടത്തെ കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂവെന്നും ഹർദീപ് സിങ് പുരി പറഞ്ഞു സമയോചിതമായ ഇടപെടൽ ദുരന്തത്തിന്റെ ആഘാതം കുറച്ചെന്നും വിമാനത്താവള അധികൃതരും പ്രാദേശിക ഭരണകൂടവും കൃതൃമായി ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ സംഭവ സ്ഥലം വ്യോമയാന മന്ത്രി സന്ദർശിച്ചു

വിമാന അപകടത്തെ കുറിച്ച് സമഗ്ര അന്വേഷണം ആരംഭി ച്ചു

അപകടത്തിൽപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മരിച്ചവരെ യെല്ലാം തിരിച്ചറിയാനായി

കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറാ്യി വിജയനോടൊപ്പം എത്തിയതായിരുന്നു ഗവർണർ

മറ്റു് സംസ്ഥാനങ്ങളിലെ ഗവർണർ മാരും മുഖ്യമന്ത്രിമാരും ദൂഃഖം പങ്കുവെച്ചതായും ഗവർണർ പറഞ്ഞു

പെട്ടന്നുണ്ടായ ദുരന്തത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെയാണ് പലരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് ഇവർക്ക് പരിശോധന നടത്തും രക്ഷാദൌതൃത്തിൽ പങ്കെടുത്തവർ ദിശയിലോ മലപ്പുറം കോഴിക്കോട് ജില്ലാ കൺട്രോൾ റൂമിലോ ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഒന്നേകാൽ കോടിയോളം പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയ ത്

അവസാന ആളിനെയും കണ്ടെത്തുംവരെ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി ഇ

ദുരന്തമേഖലയിൽ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്

മന്ത്രിമാരായ എം എം മണിയും ഇ ചന്ദ്രശേഖരനും സംഭവസ്ഥ ലത്ത് കൃാംപ് ചെയ്ത് രക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു

ദുരന്തത്തിൽപ്പെട്ടവരുടെ കൂടുംബാംഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു

കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി് ജില്ലകളിലടക്കം കനത്ത മഴ തുടരും ഇന്ന് കണ്ണൂർ വയന്യൂട് കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലകളിലും നാളെ ഇടുക്കി ്രമലപ്പുറം വയനാട് ജില്ലകളിലുമാണ് റെഡ് അലർട്ട്

മഴ കനത്തോടെ എട്ട് ഡാമുകൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് കെ എസ്

ബി

കല്ലാർകുടി ലോവർ പെരിയാർ ഇരട്ടയാർ പൊന്മുടി പെരിങ്ങൾക്കുത്ത് കല്ലാർ കുറ്റ്യാടി എന്നീ അണക്കെട്ടുകളാണ് ഏത് നിമിഷവും തുറക്കുക

കേന്ദ്ര സേനയടക്കം ഇടുക്കി അടക്കമുള്ള ദുരന്ത മേഖലകളിൽ രക്ഷാ പ്രവർത്തനം നടത്തുകയാണ്

രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാട്ടനാ്ഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊ ടുത്തു

കേന്ദ്ര ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് ഇത്തരം സംരംഭങ്ങളുടെ സംഭാവന നിലവിൽ കുറവാണ് എന്നാൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ ഇത് ഉയർത്തിക്കൊണ്ടു വരാൻ കഴിയും

നാളെ രാവിലെയാണ് നിറപുത്തരി പൂജ തുടർന്നുള്ള ചടങ്ങുകളും പൂജകളും പൂർത്തിയാക്കി നാളെ വൈകിട്ട് നട അടയ്ക്കും